നിലവിൽ ഒരുലക്ഷം രൂപവരെ നിക്ഷേപങ്ങൾക്കാണ് ഇൻഷൂറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ നിയന്ത്രി ക്കുന്നതിനും മറ്റന്നാൾ ആരംഭിക്കുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരുമെന്ന് അവർ ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് പറഞ്ഞു ക്ഷേമപദ്ധതികൾക്ക് ബജറ്റിൽ അനുവദിച്ച പണം വെട്ടിക്കുറയ്ക്കാൻ ഗവൺമെന്റിന് ഉദ്ദേശ്യമില്ലെന്നും നിർമല സീതാരാമൻ വൃക്തമാക്കി രദ്ദേഷ്ടങ പാർലമെന്റ് ശീതകാല സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും സമ്മേളന ത്തിന് മുന്നോടിയായി സ്പീക്കർ ഓംബിർള വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും

പൌരത്വ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലത്ത് പാസ്സാക്കിയെടുക്കാൻ ഗവൺമെന്റിന് പരിപാടിയുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ ബില്ല് അവതരിപ്പി ച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പാസ്സാക്കാൻ കഴിഞ്ഞിരുന്നില്ല

പിയും കോൺഗ്രസും ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് എൻ

പി അധ്യക്ഷൻ ശരത്പവാർ അറിയി ച്ചു സംസ്ഥാനത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പിന് സാധൃത തള്ളിക്കളഞ്ഞ അദ്ദേഹം സഖ്യഗവൺമെന്റ് അഞ്ചുവർഷം പൂർത്തിയാക്കുമെന്നും നാഗ്പൂ രിൽ പറഞ്ഞു ശിവസേനക്കായിരിക്കും മുഖ്യമന്ത്രിപദമെന്ന് എൻ

പി മുഖ്യ വക്താവ് നവാബ് മാലിക് മുംബൈയിൽ അറിയിച്ചു പ്യാഴാഴ്ച മുംബൈ യിൽ ചേർന്ന കോൺഗ്രസ് എൻ

പി സേനാ നേതാക്കളുടെ യോഗം ഭര ണത്തിന് പൊതുമിനിമം പരിപാടിയുടെ കരട്ട് തയ്യാറാക്കിയിരുന്നു അതേസ മയം മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ ഇന്ന് ഗവർണറെ കാണുന്നുണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശം ഉന്നയിക്കുന്നതിനുവേണ്ടിയല്ല ഗവർണറെ കാണുന്നതെന്നാണ് റിപ്പോർട്ട് മഴ്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്തെ ലോകായുക്തക്ക് വിപുലമായ നിയമ അധികാരം നൽകി യിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടന്ന ലോകായുക്ത ദിനാഘോഷ ചടങ്ങിൽ മുഖ്യപ്ര ഭാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ ചിന്താ ഗതിയിൽ വലിയ മാറ്റം ഉണ്ടാവണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ലോക്പാൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് പിനാകിചന്ദ്ര ഘോഷ് പറഞ്ഞു

കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷനായിരുന്നു

പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും എൻ

എസ് എൻ

സി ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി

മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിക്കും

അഞ്ചിന് ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേശ്വർ മോഹനരുടെ കാർമി കത്വത്തിൽ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് വിളക്ക് തെളിയിക്കും ശബരിമലയിലെ പുതിയ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി എം എസ് പരമേശ്വരൻ നമ്പൂ തിരി എന്നിവർ ഇന്ന് ചുമതലയേൽക്കും ശബരിമലയിലും പരിസരത്തും പൊലീസ് സുരക്ഷ കർശനമാക്കി

കഴിഞ്ഞ തീർത്ഥാടന കാലത്തെപോലെ ഇത്തവണ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പത്ത നംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു നിലക്കലും പമ്പയിലും സന്നിധാനത്തും തീർത്ഥാടകർക്കുവേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്

സുപ്രീംകോടതിയുടെ ഇപ്പോഴത്തെ വിധിയിൽ ഒട്ടേറെ ആശയക്കുഴപ്പമുള്ളതിനാൽ വൃക്തമായ തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകുന്നതുവരെ യുവതീ പ്രവേശനം അനുവദിക്കേണ്ടതില്ലെന്നും വിധി യിൽ വൃക്തത വരുത്താൻ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങേണ്ടതില്ലെന്നും തിരുവ നന്തപുരത്ത് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു

സുപ്രീംകോടതി വിധി തങ്ങളുടെ നിലപാടിന് ലഭിച്ച അംഗീകാര മാണെന്ന് യു

എഫ് നേതൃയോഗ തീരുമാനം വിശദീകരിച്ച് തിരുവനന്ത പുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു സത്യവാ ങ്മൂലം നിലനിർത്തിയാൽ അത് വിശ്വാസികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കുമെന്നും മുഖ്യമന്ത്രി വിശ്വാസ സമൂഹത്തെ കബ ളിപ്പിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു അയോധ്യ വിധി മാനിക്കുന്നു വെന്നും ബാബ്രി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന് സുപ്രീംകോ ടതി പറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കേസ് വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണ്മെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ സർവകലാശാല സ്റ്റേഡി യത്തിലാണ് മേള നടക്കുന്നത്

പി ജയരാജൻ കായികോത്സവം ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച സമാപിക്കും രദേഷ്ടങ കാസർകോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കാസർകോട് ഉപജില്ല ജേതാക്കളായി ഹോസ്ദുർഗ് ഉപജില്ലക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു രദേഷ്ടെടു കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചങ്ങനാശേരി ഉപ ജില്ല ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചങ്ങ നാശേരി ഉപജില്ലയും ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ കുറവിലങ്ങാട് ഉപജില്പയുമാണ് ജേതാക്കൾ

കൊല്ലം നീണ്ടകര മാരിടൈം അക്കാദമിയിൽ ആരംഭിച്ച പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട സൻസദ് ആദർശ് ഗ്രാമയോജനയിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മൂന്നാർ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയതായി ഡീൻ കുര്യാക്കോസ് എം പി അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ആയിരം ദിവസത്തിനകം ദാരിദ്രൃ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മിഷൻ അന്ത്യോദയ പദ്ധതിയുടെ വയനാട് ജില്ലാതല വിവരശേഖരണം തുടങ്ങി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരി ശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ ഉദ്ഘാടനം ചെയ്തു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കൊച്ചി നഗരത്തിലെ റോഡുകളിലെ കുഴികൾ യുദ്ധകാലാടിസ്ഥാന ത്തിൽ അടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷനും വിശാല കൊച്ചി വികസന അതോറിറ്റിക്കും നിർദ്ദേശം നൽകി ഇതിനായി പ്രത്യേക അനുമതിക്ക് കാത്തുനിൽക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടി ക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് രുട്ട്ട്ട്ട്ട്ട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധനാമകരണത്തിന്റെ കൃതജ്ഞതാബലിയും ദേശീയ സമ്മേളനവും ഇന്ന് തൃശൂർ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസൃയുടെ കബറിട ദേവാലയത്തിൽ നടക്കും വത്തിക്കാനിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ വിശുദ്ധരാക്കപ്പെട്ടവരുടെ രാജ്യത്ത് നടത്തുന്ന വലിയ ചടങ്ങാണിത് നൂറോളം ബിഷപ്പുമാർ പങ്കെടുക്കുന്ന ചടങ്ങിന് സിറോ മലബാർ ആർച്ച് ബിഷപ്പ് കർദ്ദി നാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി മുഖ്യകാർമികത്വം വഹിക്കും കേന്ദ്ര സം സ്ഥാന മന്ത്രിമാരും പങ്കെടുക്കും രദ്ദേഷ്ടങ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ ദേവരഥ സംഗമം ഇന്ന് വൈകീട്ട് നടക്കും രഥോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പാലക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ദർവ്വെട്ടറ ദീൻദയാൽ ഉപാദ്ധ്യായ ഗ്രാമീണ കൌശൽ യോജന സംസ്ഥാനതല നൈപുണ്യ മത്സര സമാപനം ഇന്ന് തൃശൂരിൽ നടക്കും ദേശീയ ഗ്രാമീണ ട ഉപജീവന മിഷൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം എന്നിവയുടെ നേതൃ ത്വത്തിൽ കുടുംബശ്രീ വഴിയാണ് ഗ്രാമീണ കൌശൽ യോജന നടപ്പാക്കുന്ന ത് സമാപന സമ്മേളനത്തിൽ ടി എൻ പ്രതാപൻ എം പി സമ്മാനദാനം നിർവ ഹിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന അമച്ചർ നാടക പുരസ്കാര സമർപ്പണം ഇന്ന് പാലക്കാട് നെന്മാറയിൽ നടക്കും മന്ത്രി എ കെ ബാലൻ പുരസ്കാരങ്ങൾ സമർപ്പിക്കും ദർവ്വെട്ടറ ഭാരതീയ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ ദേശ്രീയ വിദ്യാഭ്യാസ ന യത്തിന്റെ കരട്രേഖ സംബന്ധിച്ച ഏകദിന സെമിനാർ ഇന്ന് കോഴിക്കോട്ട് നടക്കും കേന്ദ്രമാനവ ശേഷിവകുപ്പ് നാഷണൽ മോണിറ്ററിംഗ് അംഗം എ വിനോദ് ഉദ്ഘാടനം ചെയ്യും രദ്ദേഷ്ടങ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാ ക്കാൻ ജില്ലാ കലക്ടർ എച്ച് ദിനേശന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു വാഗമൺ തേക്കടി മൂന്നാർ എന്നിവിടങ്ങ ളിലെ ഔട്ട്പോസ്റ്റുകളിൽ ടൂറിസം പൊലീസിന്റെ മുഴുവൻ സമയ സേവനം ലഭ്യമാക്കും രദ്ദേഷ്ടങ പാലക്കാട് ജില്ലയിൽ ഒന്നാംവിള നെല്ല്സംഭരണത്തിൽ ഇതുവരെ നൂറു കോടിയിൽപ്പരം രൂപയുടെ നെല്ല് സംഭരിച്ചതായി സപ്ലൈകൊ അറിയിച്ചു

കാരന്തൂർ സ്വദേശി അശോകന്റെ വീട്ട് പരിസരത്തുനിന്നാണ് വ്യാജകള്ള് പിടിച്ചെടുത്തത് രുട്ട്ട്ട്ട്ട്ട്ട സ് കൂൾ പരിസരത്തും മറ്റും വിദ്യാർഥികളുടെ ലഹരി ഉപയോഗം തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ കണ്ണൂർ ജില്ലാ പ ഞ്ചായത്ത് നിർദ്ദേശം നൽകി

ൾട്ട്ട്ട്ട്ട്ട്ട കക്കാടംപൊയിലിൽ സഹോദർനൊപ്പം ബൈക്കിലെത്തിയ മാധ്യമ പ്രവർത്തകയെ സദാചാര ഗുണ്ട ചമഞ്ഞ് കൈയ്യേറ്റം ചെയ്ത കേസിലെ നാലാംപ്രതിയെ വർഷങ്ങൾക്ക് ശേഷം പൊലീസ് അറസ്റ്റ് ചെയ്തു നില മ്പൂർ അകമ്പാടം സ്വദേശി റഹ്മത്തുള്ളയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്

വാളാട് ഇല്ലത്തുമൂല ഇലവുങ്കൽ വീട്ടിൽ അഞ്ജു ജോസഫാണ് മരിച്ചത്